നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജസ്ഥാൻ തെലങ്കാന സംസ്ഥാനങ്ങളിൽ നാടിളക്കിയുള്ള പ്രചരണവുമായി രാഷ്ട്രീയ പാർട്ടികൾ

ജർമ്മൻ ചാൻസലറുമായും അർജന്റീന ഫ്രാൻസ് ദക്ഷിണാഫ്രിക്ക സ്പെയിൻ എന്നീ രാജൃങ്ങളിലെ പ്രസിഡന്റുമാരുമായും ശ്രീ

ഇത്തരക്കാർക്ക് സുരക്ഷിത താവളം ഒരുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു ഇവർക്കെതിരെ ശക്തവും ഫലപ്രദവുമായ നടപടി സ്വീകരിക്കുന്നതിന് ഒമ്പതിന അജണ്ടയും പ്രധാനമന്ത്രി അവതരിപ്പിച്ചു സാമ്പത്തിക ക്രമക്കേടു നടത്തുന്നവരുടെ കൈവശമുളള അനധികൃത പണം കണ്ടെത്താൻ സമഗ്രവും കാര്യക്ഷമവുമായ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നതിന് അംഗരാജ്യങ്ങളുടെ സഹകരണവും ഇടപെടലും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു

വാർധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ദീർഘനാളായി വിശ്രമത്തിലായിരുന്നു അദ്ദേഹം അമേരിക്കയുടെ നാൽപത്തിയൊന്നാമത് പ്രസിഡന്റായിരുന്നു ബുഷ് സീനിയർ രണ്ടു തവണ അമേരിക്കൻ പ്രസിഡന്റായ ജോർജ് ഡബ്ല്യു ബുഷ് അദ്ദേഹത്തിന്റെ മകനാണ്

ഗൾഫ് യുദ്ധത്തിൽ അമേരിക്കൻ ഇടപെടൽ ബ്രുഷിന്റെ കാലഘട്ടത്തിലായിരുന്നു

ബാർബറയുടെ സംസ് കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ബുഷിനെ തൊട്ടുപിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പാർക്കിൻസൺസ് രോഗം പിടിപെട്ടതിനാൽ ഏറെ നാളായ പൊതുരംഗത്ത് നിന്നും അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു

ന്യൂസ് ഡസ്ക് ആകാശവാണി

അടുത്ത ആഴ്ചയോടെ അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം

കഴിഞ്ഞ മാസം ആദ്യം ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ശ്രീ വധേര ഹാജരായില്ല

ഐ

വി യ്ക്കെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന സന്ദേശം ഉയർത്തി ഇന്ന് ലോകമെമ്പാടും എയ്ഡ്സ് ദിനം ആചരിക്കുന്നു ഒപ്പം എച്ച് ഐ

ബാധിതർക്ക് പിന്തുണയേകാനും എയ്ഡ്സ് ബാധിച്ച് മരണപ്പെട്ടവർക്ക് സ്മരണാഞ്ജലി അർപ്പിക്കാനും ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു

ഐ

ബാധിച്ച് ഇതുവരെ മരിച്ചത് ദിനാചരണത്തോടനുബന്ധിച്ച് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്

എൻ

എൻ

അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ്യ ്ലംഘനങ്ങൾ ഒഴിവാക്കുന്നതിനാണ് വംശഹത്യ തടയുന്നത് പ്രിംബ്ന്ധിച്ച് യു എൻ നയരൂപീകരണം നടത്തിയത്

ബെംഗളൂരു വിലെ ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സയന്റിഫിക് റിസർച്ചിലെ ഭൂകമ്പ ശാസ്തജ്ഞൻ സി പി രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഗവേഷകരാണ് പുതിയ പഠനത്തിനു പിന്നിൽ നേപ്പാളിൽ സ്ഥിതിചെയ്യുന്ന മോഹന ഖോല നേപ്പാൾ അതിർത്തിയോട് ചേർന്ന് സ്ഥിതിചെയ്യുന്ന ചോർഗാലിയ എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് പുതിയ പഠനം നടന്നത്

ക്ഷേമ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിൽ തടസങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഈ നിർദ്ദേശം ആധാർ ഉപയോഗവുമായി ബന്ധപ്പെട്ട സുപ്രീംക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഔഫ്പ് ഇന്ത്യ നാഷണൽ പേമെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് അയച്ച കത്തിന്റെ പശ്ചാത്തലത്തിലാണ് യു

സ്വകാര്യ സ്ഥാപനങ്ങൾ ആധാർ തീരിച്ചറിയൽ കാർഡ് ഗുണഭോക്താക്കളോട് ആവശ്യപ്പെടുന്നത് വില്ലക്കിക്കൊണ്ട് സുപ്രീംകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു

വിശദാംശങ്ങളുമായി ശ്രീലത

പല പോളിംഗ് ബൂത്തുകളിലും അതിശൈത്യത്തെ അവഗണിച്ചും വോട്ട്ചെയ്യാനെത്തുന്നവരുടെ നീണ്ട നിര ദൃശ്യമാണ്

സമ്മതിദായകരുടെ പിൻതുണ ഉറപ്പാക്കുന്നതിനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉന്നത നേതാക്കൾ പൊതുയോഗങ്ങളിൽ സജീവമാണ് രാജസ്ഥാനിൽ ബി ജെ

പ്രസിഡന്റ് അമിത് ഷാ മുഖ്യമന്ത്രി വസുന്ദരാ രാജെ കോൺഗ്രസ് നേതാക്കളായ അശോക് ഗെഹ് ലോട്ട്സച്ചിൻ പൈലറ്റ്രാഷ്ട്രീയ ലോക്ദൾ പ്രസിഡന്റ് അജിത്ത് സിംഗ് എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു തെലങ്കാനയിൽ മുതിർന്ന ബി ജെ

നേതാവ് രാജ്നാഥ് സിംഗ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് തുടങ്ങിയവർ പാർട്ടീ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയിട്ടുണ്ട്

കേന്ദ്ര് ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് വർദ്ധന നടപ്പാക്കുന്നത്

ശബരിമലയിൽ സുഗമമായ തീർത്ഥാടനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട അവലോക യോഗത്തിനുശേഷം മാധ്യമങ്ങളോടു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തീർത്ഥാടകർക്ക് ശബരിമലയിൽ എന്തെങ്കിലും അസൌകര്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ബന്ധപ്പെട്ടവരുമായി അവലോകനം നടത്താനും അതിനുള്ള പ്രതിവിധി കണ്ടെത്താനും തീരുമാനിച്ചതായി അദ്ദേഹം പറഞ്ഞു

നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർജി സമർപ്പിച്ചത്

ബ്രൂവറികളും ഡിസ്റ്റിലറികളും അനുപദിച്ചതിൽ ഗുരുതരമായ അഴിമതിയാണ് നടന്നതെന്ന് ചെന്നിത്തില് ് ഹർജി സമർപ്പിച്ചശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു